പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും

ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വിൻ പ്രതികരണം

കേരളത്തിൽ സമ്പർക്ക് വ്യാപനത്തിൽ തുടർച്ചയായ വർദ്ധന

ശ്രീലങ്കയിൽ മഹിന്ദ രാജപക്സെ മന്ത്രിസഭ അധികാരമേറ്റു

പ്രത്യക്ഷ നികുതി പരിഷ്ക്കാരത്തിലെ സുപ്രധാനമാണ് ഈ സംവിധാനം

ആദായനികുതി പിരിവ് കാര്യക്ഷമമാക്കാനുള്ള നിരവധി നടപടികളാണ് കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡ് കൈക്കൊണ്ടിട്ടുള്ളത് ഔദ്യോഗികമായ ആശയ വിനിമയത്തിനുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത ഡോക്യുമെന്റ് ഐഡന്റിഫിക്കേഷൻ നമ്പർ നികുതി നിരക്കുകൾ കുറച്ചത് നികുതി നിയമങ്ങൾ ലളിതമാക്കിയത് തുടങ്ങിയ കാര്യങ്ങൾ സമീപ കാലത്ത് കൊണ്ടുവന്ന പരിഷ്ക്കാരങ്ങളാണ് ന്യൂസ് ഡെസ്ക് ആകാശവാണി

കോവിഡ് പശ്ചാത്തലത്തിലാണ് നടപടി ഡൽഹി സെക്രട്ടേറിയറ്റിൽ ലളിതമായ ചടങ്ങ് നടക്കുമെന്ന് പൊതുഭരണ വകുപ്പ് മന്ത്രി ഗോപാൽ റായ് അറിയിച്ചു കോവിഡ് പ്രതിരോധ രംഗത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടർമാർ നഴ്സുമാർ ശുചിത്വ തൊഴിലാളികൾ പ്ലാസ്മാ ദാതാക്കൾ ആംബുലൻസ് ഡ്രൈവർമാർ പോലീസ് എന്നിവരെ ചടങ്ങിലേക്ക് ക്ഷണിക്കും മികച്ച പ്രവർത്തനത്തിന് സെൻട്രൽ ജയിൽ ഉദ്യോഗസ്ഥരെ ആദരിക്കുമെന്ന് ശ്രീ

രഹസ്യവിവരത്തെ തുടർന്ന് സി

എഫ് ഡി ആർ

സ്ഥലത്തു നിന്നും നാല് തോക്കുകളും മറ്റായുധങ്ങളും സുരക്ഷാസ്ലേന കണ്ടെടുത്തു

ഭീക്രരുടെ സാന്നിധ്യത്തെക്കുറിച്ച് ലഭിച്ച വിവരത്തെ തുടൂർണ് ക്രമസിപ്പോര ഗ്രാമത്തിലെ പഴത്തോട്ടത്തിൽ സൈന്യൂം പുലർച്ചെ നടത്തിയ തെരച്ചിലിനിടെയാണ് വെടിവയ്പ്പ് ഉണ്ടായത്

പോൾ ആരോഗ്യ സെക്രട്ടറി എന്നിവരുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് വാക്സിൻ കണ്ടെത്തുന്നതും അതിന്റെ പ്രയോഗം വിതരണം തുടങ്ങി അവസാന ഘട്ട നടപടികൾ വരെ യോഗം ചർച്ച ചെയ്തു വാക്സിൻ പരീക്ഷണത്തിനായി തെരഞ്ഞെടുക്കുന്നത് സംബന്ധിച്ച് ദേശീയ സാങ്കേതിക ഉപദേശക സമിതിയുടെ നിർദ്ദേശങ്ങളും തേടും തദ്ദേശീയമായതും വിദേശങ്ങളിൽ നിന്നുള്ളതുമായ വാക്സിൻ കമ്പനികളിൽ നിന്നും വാങ്ങുന്നതിനുള്ള നടപടിക്രമങ്ങളും ചർച്ച ചെയ്തു

തിരിച്ചറിയൽ കാർഡ് സമ്മതപത്രം എന്നിവ പരിശോധനയ്ക്ക് വിധേയമാകുമ്പോൾ നൽകണം ജനങ്ങൾക്ക് നേരിട്ട് പോയി പി സി

ടി

സി ആർ ട്രൂനാറ്റ് ആന്റിജൻ പരിശോധനകൾ നടത്താമെന്ന് സർക്കാർ ഉത്തരവിൽ പറയുന്നു

ഉച്ചയോടെ മൂന്നാർ ടീ കൌണ്ടിയിൽ ഉന്നതതല യോഗത്തിൽ പങ്കെടുത്തശേഷം മടങ്ങും പെട്ടിമുടിയിലേക്ക് ഉന്നത ഉദ്യോഗസ്ഥരുടെയും സുരക്ഷാ വിഭാഗത്തിന്റെയും വാഹനങ്ങൾക്ക് മാത്രമാണ് അനുമതി

ദുരന്തഭൂമിക്ക് സമീപത്തുകൂടി ഒഴുകുന്ന പൂഴ ്കേന്ദ്രീകരിച്ചായിരുന്നു ഇന്നലെ തിരച്ചിൽ കൂടുതൽ ഊർജ്ജിത്മായി നടന്നത്

നിയമസഭാ സമ്മേളനം വിളിച്ചുചേർക്കാൻ മന്ത്രിസഭാ യോഗം ഗവർണറോട് ശുപാർശ ചെയ്യുകയായിരുന്നു

നിയമസഭാ സമുച്ചയത്തിന്റെ മൂന്നാംനിലയിലെ പാർലമെന്ററി സ്റ്റഡിഹാളിലാണ് വോട്ടെടുപ്പ്

പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ് ഉചയ്ത മഹീന്ദ രാജപക്സെ ധനകാര്യ വകുപ്പ് നിലനിർത്തി് മഹീന്ദയുടെ മകൻ നമൽ മന്ത്രിസഭ യിലെ ഏറ്റവും പ്രായ്യം കുറഞ്ഞ അംഗമായി രാജപക്സെ കുടുംബത്തിലെ മറ്റൊരു അംഗമായ ചമൽ രാജപക്സെ ജലസേചന മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു

തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു

ഇരുന്നൂറോളം ചലച്ചിത്രങ്ങൾക്ക് ഗാനരചന നടത്തിയിട്ടുണ്ട്

ആർ

ശക്തമായ കാറ്റിനു സാധൃതയുള്ളതിനാൽ മത്സൃത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു